സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സംസ്ഥാനത്ത് മഴ് തുടരുന്നു ഏഴ് ജില്ലകളിൽ യെല്ലോ ന് അലേർട്ട്

രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

ഫൈനലിൽ അലക്സാണ്ടർ സ്വർവും ഡൊമിനിക് തീമും തമ്മിൽ ഏറ്റുമുട്ടും

വൈ ദരിദ്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

പിഎംഎവൈ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങളിലെ വീട് നൽകാനായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദരിദ്രരെ സഹായിക്കാനുള്ള ഈ സുപ്രധാന പദ്ധതി വനിതാ ശാക്തീകരണത്തിനുള്ള ചുവടുവയ്പ്പ് കൂടിയാണ് മധ്യപ്രദേശിൽ സമൂഹിക ഗൃഹപ്രവേശനത്തിൽ ജനങ്ങൾ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്

ഗുണഭോക്താക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രിയെ ചോദൃം ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം

യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് യുവമോർച്ച തുടങ്ങിയ പ്രതിപക്ഷ യുവജന സംഘടനകളും വിവിധ ജില്ലകളിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്

യു വിന്റെയും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിലും സെക്രട്ടറിയേറ്റ് മാർച്ച് സ്ലൂംഘടിപ്പിക്കുന്നുണ്ട്

ജലീലിന് കേരളത്തിലെ മുഖ്യമന്ത്രി അനർഹമായ സംരക്ഷണമാണ് കൊടൂക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷർ ഷാഫി പറമ്പിൽ എം

ചിന്നക്കടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കടപ്പാക്കടയിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്

പ്രളയാനന്തരം സംസ്ഥാനത്തെ വിവിധ മതസ്ഥാപനങ്ങൾക്കും അവരുടെ സന്നദ്ധ സംഘടനകൾക്കും കോടിക്കണക്കിന് രൂപ എത്തിയത് സംബന്ധിച്ച് മന്ത്രി ജലീലിന്റെ പങ്ക് ഇ

മന്ത്രി കെ

ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും കെ

ജയൻ സ്മാരകം നടൻ ജയന് സ്മാരകമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഇന്ന് മന്ത്രി ജെ

രാജു അനാച്ഛാദനം ചെയ്യും

അതിനൂതന സംരംഭങ്ങളുടെ ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിലൂടെയാണ് ഈ സംസ്ഥാനങ്ങൾ മുന്നിലെത്തിയത്

മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എറണാകുളം തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ എല്ലോ അലേർട്ടാണ്

കാടാച്ചിറ എടക്കാട് റോഡിൽ മര്യ്ക്ക് വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു

തലശ്ശേരി സ്വദേശിയാണ് അറസ്റ്റിലായത് കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു

വനിതാ വിഭാഗം സിംഗിൾസിൽ ബെലാറസിന്റെ വിക്ടോറിയ അസരങ്ക ജപ്പാന്റെ നവോമി ഒസാക്കയുമായി ഇന്ന് ഏറ്റുമുട്ടും

പഞ്ച്വായ്ത്ത് പ്ലാൻ ഫണ്ടുപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത്

കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് പരീക്ഷ നടത്തുന്നത്

കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർക്കായി പ്രത്യേകം ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആരംഭിക്കുന്ന കുടുംബശ്രീ ബസാറിന്റെ ഉദ്ഘാടനം മന്ത്രി എം

റോഷി അഗസ്റ്റിൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും

എസ് ആർ ടി

ലോക്ഡൌൺ ഇളവുകളെ ത്യൂടർന്നാണ് നടപടി